കാർഷിക ബില്ലുകൾ കർഷകർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ക്ട്രേന്ദ്രകൃഷി മന്ത്രി ബില്ലുകൾക്കെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്

ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള യു

അവാർഡ് കേരളത്തിന്

വിജയം

അന്താരാഷ്ട്ര വേദികളിൽ ഉഭയകക്ഷി വിഷയങ്ങൾ ഉന്നയിക്കുന്നത് അത്തരം വേദികളുടെ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്നും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഔദ്യോഗികനയമാക്കിയ ഒരു രാജ്യത്തിൽ നിന്ന് ഇതിലപ്പുറം മര്യാദ പ്രതീക്ഷിക്കാനാവില്ലെന്നും ശ്രീവാസ്തവ പറഞ്ഞു ന്യുസ് ഡസ്ക് ആകാശവാണി

മാർച്ചിൽ നടന്ന കാബൂൾ ഗുരുദ്വാരാ ആക്രമണത്തിന് ശേഷം ഇന്തൃയിൽ താമസിക്കാനുള്ള സിഖ് ഹിന്ദു വിശ്വാസികളുടെ അപേക്ഷകളുടെ എണ്ണം കൂടിയതായും ശ്രീവാസ്തവ കൂട്ടിച്ചേർത്തു

ഇന്തൃയിലെ പ്രകൃതിവാതക അടിസ്ഥാന സൌകര്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ മന്ത്രി ക്ഷണിച്ചു ഈ വർഷം ജൂണിൽ ആരംഭിച്ച തന്ത്രപ്രധാന പെട്രോളിയം സംഭരണ സഹകരണത്തെ യോഗം വിലയിരുത്തി

രാജ്യത്തെ പാവപ്പെട്ടവരെ സേവിക്കാനും അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടു വരാനും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാദ്ധ്യായ മുന്നോട്ട് വച്ച മൂലൃങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

കഴിഞ്ഞ ഇന്തൃ ആഫ്രിക്ക ചർച്ചവേദി സമ്മേളനത്തിൽ ഇന്ത്യ വാഗ്ദാനം ചെയ്ത പദ്ധതികളിൽ മികച്ച പുരോഗതി കൈവരിച്ചതായും മന്ത്രി അറിയിച്ചു

രാജ്യത്തെ കർഷകരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ബിൽ വഴിയൊരുക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

കർഷകരെ വഴിതെറ്റിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് താങ്ങുവില സമ്പ്രദായം ഭാവിയിൽ തുടരും

ബില്ലുകൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരള മന്തിസഭ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിന് പിഴവില്ലെന്ന് ശ്രീ നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കിയത്

ഗാന്ധിജയന്തി ദിനത്തിൽ ജില്ലകളിലും അസംപ്തി മണ്ഡലങ്ങളിലും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്

ബാലസുബ്രഹ്മണൃത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതൂര്യവ്സ്ഥയിൽ തുടരുന്നു

എക്മോയുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സാധ്യമായ എല്ലാ വൈദൃസഹായങ്ങളും നല്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു

റഷ്യ ബ്രിട്ടൺ മെക്സിക്കോ നൈജീരിയ അർമേനിയ സെൻഹെലന എന്നിവയ്ക്കൊപ്പമാണ് കേരളത്തിനും അവാർഡ് ലഭിച്ചത്

ശൈലജ പറഞ്ഞു

കൊച്ചിയിലെ എൻ

എ

കേസിലെ പ്രതി സ്ഥപ്ന ്സുരേഷിനൊപ്പമാണ് എം

കേസിൽ ഇത് മൂന്നാം തവണയാണ് എം ശിവശങ്കറിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത്

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കെ

ഇന്ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ കിങ്സിനെ നേരിടും

ഇന്നുള്ളിട്ട് വൈകിട്ടോടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പ്ലാക്സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചത് നൌഷ്ട്രേ സെക്ടറിൽ പാക്സേന മോർട്ടാർഷെൽ ആക്രമണ്ങ്ങൾ നടത്തി ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു തിങ്കളാഴ്ചയും രജൌരിയിലെ സുന്ദർബനി സെക്ടറിൽ പാക്സേന് വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരുന്നു

ഐ വാങ്ങുകയും തുല്യമൂലൃമുളള ഹ്രസ്വ കാലാവധി കടപത്രങ്ങൾ വിൽക്കുകയും ചെയ്യും